പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

പുറത്തിറങ്ങുന്ന്വർ സത്യവാങ്മൂലം നിർബന്ധമായും കൈയ്യിൽ കരുതണം

നാല് ലക്ഷം പിന്നിട്ടു

വിദേശരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച കോവിഡ് ചികിത്സാ ഉപകരണങ്ങളും മരുന്നുകളും കൃത്യമായി വിതരണം ചെയ്തുവരുന്നതായി കേന്ദ്രസർക്കാർ

യൂണിയൻ നേതൃതല കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിനുള്ള ആഗോള സഹകരണം സുസ്ഥിര വികസനം ഇന്തൃയും യൂറോപൃൻ യൂണിയനുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം മേഖലയിലെയും ആഗോള തലത്തിലുമുള്ള പ്രശ്നങ്ങൾ എന്നിവ ചർച്ചയാകും

വിദേശരാജൃങ്ങളിൽ നിന്നുമുള്ള അവശ്യവസ്തുക്കളുടെ ലഭ്യതയ്ക്കനുസരിച്ച് വിതരണം ഉറപ്പാക്കാൻ പ്രത്യേക സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്കായി ദ്രവ്യ ഓക്സിജൻ വിതരണവുമായി ഇന്ത്യൻ റെയിൽവേയും കർമനിരതരാണ്

പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങുന്നവർ വൃക്തിവിവരങ്ങളും യാത്രാ ഉദ്ദേശൃവും ഉൾപ്പെടുത്തിയ സത്യവാങ്മൂലം നിർബന്ധമായും കൈയ്യിൽ ക്രൂതണം

പൊതുജനങ്ങൾക്ക് ഓൺള്ലൈൻ പാസിനുള്ള സംവിധാനം ഇന്ന് വൈകിട്ടോടെ നിലവിൽ വരുമെന്ന് പോലീസ് അറിയിച്ചു

തുറന്നു പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഓഫീസുകളിൽ പരമാവധി ജീവനക്കാരെ കുറയ്ക്കണം

ലോക്ക്ഡൌൺ ഘട്ടത്തിൽ പരിഭ്രാന്തരായി ഇത്തരം കടകളിൽ തിക്കും തിരക്കും ഉണ്ടാക്കരുതെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്

എന്നാൽ ഹോട്ടലുകൾ സമൂഹ അടുക്കള ജനകീയ ഹോട്ടൽ തുടങ്ങിയ സംവിധാനങ്ങളുണ്ടാകും

പൊതുജനങ്ങൾ ലോക്ക് ഡൌണുമായി സഹകരിച്ച് കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളികളാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു

ചിട്ടി വായ്പ എന്നിവയുടെ തവണ്ടു പിരിക്കാൻ ധനകാരൃ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ വീടുകൾ സന്ദർശിക്കുന്നത് ലോക്ഡൌൺ അവസാനിക്കുന്നതുവരെ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

കോവിഡിനെതിരെ വീട്ടിൽ തയ്യാറാക്കാവുന്ന മരുന്ന് ആശുപത്രികളിൽ കിടക്കകളുടെ ദൌർലഭ്യം ലോക്ഡൌൺ സംബന്ധിച്ച തെറ്റായ നിർദ്ദേശങ്ങൾ എന്നിവയാണ് അവയിൽ ചിലത്

രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്

മൂന്നാമതൊരു തരംഗം ഒഴിവാക്കാൻ പ്രതിരോധ നിർദ്ദേശങ്ങൾ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രാലയം അടിവരയിട്ടു പറഞ്ഞു അതിനിടെ മണിപ്പൂർ ത്രിപുര സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖൃമന്ത്രിമാരുമായി ഇന്നലെ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടങ്ങളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു

ആകാശവാണി

കർണാടകയിലെ കോവിഡ് മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും യദ്യൂരപ്പ പറഞ്ഞു

അനാവശ്യ യാത്രകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു

അക്രമങ്ങൾ തടയാൻ സ്വീകരിച്ച നടപടികളെപ്പറ്റി വിശദീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടു അതിനിടെ സംഭവങ്ങളിൽ ദേശീയ വനിതാ കമ്മിഷൻ സ്വമേധയാ കേസെടുത്തു

സി

ജൂണിൽ നടക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ന്യൂസിലന്റിനെതിരെയാണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ഓഗസ്റ്റിൽ തുടക്കമാകും

ശ്യാളിക്ക് ബനഗലിന്റെ ക്സാസിക് ചിത്രങ്ങളായ അങ്കൂർ ഭൂമിക എന്നിവ്യ്ക്കും നിരവധി ടി വി സീരിയലുകൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്

ഗോവിന്ദ് നിഹലാനിയുടെ തമാസിലൂടെ മികച്ച സംഗ്ലീത് സംവിധായകനുള്ള ദേശീയ അവാർഡും സംഗീത നാടക അക്കാദമി അവാർഡും നേടി